തിരഞ്ഞെടുപ്പുകളിലെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും

പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തി വരെ നീളുന്ന കർത്താർപൂർ സാഹിബ് ഇടനാഴിക്ക് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ഇന്ന് തറക്കല്ലിടും

കേരളത്തിൽ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് രാജിവച്ചു കെ കൃഷ്ണൻകുട്ടി നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

മധ്യപ്രദേശിൽ ബി ജെ പി യ്ക്കുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രിമാരായ രാജ്നാഥ്സിംഗ് സ്മൃതി ഇറാനി എന്നിവരും കോൺഗ്രസിനുവേണ്ടി കമൽനാഥ് ജ്യോതിരാദിത്യ സിന്ധ്യ ദിഗ്വിജയ് സിംഗ് സമാജ്വാദി പാർട്ടി പ്രതിനിധി അഖിലേഷ് യാദവ് തുടങ്ങിയവർ അവസാന ദിവസമായ ഇന്ന് പ്രചാരണത്തിനെത്തുന്നുണ്ട്

പോരാട്ടം പ്രധാനമായും നടക്കുന്നത് കോൺഗ്രസ്സ് പ്രതിപക്ഷപാർട്ടിയായ മിസോ നാഷണൽ ഫ്രണ്ട് സോറം പിപ്പിൾസ് മുവ്മെന്റ് എന്നീ മുന്ത് പാർട്ടികൾക്കിടയിലാണ്

രാജസ്ഥാനിൽ പ്രധാന്റ്മന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭിൽവാര ദുംഗാർപൂർ കോട്ട എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്തൃൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചതിന്റെ എഴുപതാം വാർഷികമാണ് ഇന്ന് ദിനാചരണത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ന്യൂഡൽഹിയിൽ നിർവ്വഹിച്ചു ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് നിയമ നിർമ്മാണ സഭകൾ എന്നിവയുടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂവെന്ന് രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് ചടങ്ങിൽ പങ്കുടുത്ത സുപ്രീംകോടതി ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗോഗോയ് അഭിപ്പായപ്പെട്ടു കേന്ദ്ര നിയമ മന്ത്രി രവിശങ്കർ പ്രസാദ് പങ്കെടുത്തു

ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ മഹത്തായ സംഭാവനകൾ നൽകിയ മഹാൻമാരെ ഇന്ന് രാജൃം ആദരപൂർവ്വം സ്മരിക്കുന്നതായി ശ്രീ നരേന്ദ്രമോദി ടിറ്ററിലൂടെ അ ിയിച്ചു ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വെങ്കയ്യനായിഡു ഇന്ന് തറക്കല്ലിടും പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിലെ മാൻ ഗ്രാമത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര മന്ത്രിമാരായ നിതിൻ ഗഡ്കരി ഹർസിമ്രത് കൌർബാദൽ പഞ്ചാബ് മൂഖ്യമിന്തി അമരീന്ദർ സിംഗ് എന്നിവർ പങ്കെടുക്കും കുടുതൽ വിവരങ്ങളുമായി സ്യോഫിയ

ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഗുരുദ്ധാര സന്ദർശനം ഇതിലൂടെ എളുപ്പമാക്കാനും മേഖലയിൽ ടൂറിസത്തിന് പ്രോത്സാഹനം നൽകാനും ലക്ഷ്യമിടുന്നു

ഇടനാഴിയുടെ പാകിസ്ഥാനിലെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായി കേന്ദ്രമന്ത്രിമാരായ ഹർസിമ്രത് കൌർ ബാദലും ഹർദീപ് പുരിയും മറ്റന്നാൾ പാക്കിസ്ഥാനിലേക്ക് യാത്രതിരിക്കും ഇരു രാജ്യങ്ങളിലെയും സിഖ്സമുദായങ്ങളെ കൂടുതൽ അടുപ്പിക്കാനുള്ള പാക് ശ്രമങ്ങൾക്ക് ഇന്ത്യ നൽകിയ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മുദ് ഖുറേഷി പറഞ്ഞു

പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം ഒ

സി യുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ വഴിയാണ് പമ്പുകൾ തുടങ്ങുകയെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഉദ്യോഗസ്ഥൻ പാർത്ഥ് അറിയിച്ചു

ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രിയാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുസ്മരിച്ചു

മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ സ്ഥിതിഗതികൾ സാധാരണനിലയിലേക്ക് എത്തിക്കാനും അജ്മൽ കസബ് എന്ന ഭീകരനെ ജീവനോടെ പിടികൂടാനും സുരക്ഷാസേനയ്ക്ക് സാധിച്ചു ഏത് സൂരക്ഷാ വെല്ലുവിളികളേയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് നാവികസേന മേധാവി അഡ്മിറൽ സൂനിൽ ലാംബ പി ടി ഐ ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു

ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ യു എൻ സുരക്ഷാ കൌൺസിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നടപ്പാക്കാൻ പാകിസ്ഥാൻ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും തയ്യാറാകണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോ ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ന് രാവിലെ ക്സിഫ് ഹൌസിലെത്തിയ ശ്രീ മാത്യു ടി തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിക്കത്ത് കൈമാറി രണ്ടരവർഷത്തിനുശേഷം മന്ത്രിസ്ഥാനം വച്ചുമാറാമെന്ന ജെ ഡി എസ് കേരളാ ഘടകത്തിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ധാരണപ്രകാരമാണ് മാത്യു ടി തോമസിന്റെ രാജി മാത്യു ടി തോമസിനു പകരം പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള എം

കൃഷ്ണൻകുട്ടി നാളെ സത്പ്രതിജ്ഞ ചെയ്തേക്കും

ഷാജിയെ അയോഗ്യനാക്കിയ കോടതി പ്പിച്ചിക്ക് അനുവദിച്ച സ്റ്റേ വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു

ഇലവുങ്കൽ നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ഡാനിയേൽ റിച്ചാർഡിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് എത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടെ പുതുകോട്ടൈ തഞ്ചാവൂർ തിരുവാരൂർ എന്നിവിടങ്ങളിലെ നാശനഷ്ടങ്ങൾ കേന്ദ്രസംഘം വിലയിരുത്തിയിരുന്നു പ്രസ്ത്മുഖ്യമന്ത്രി എടപ്പാടി പളനിസാമി മറ്റ് മുതിർന്ന ഉദ്ദ്യോഗ്സ്ഥർ എന്നിവരുമായി നാളെ ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം എത്രയും വേഗം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്ക്ട്കാണ് കേന്ദ്ര സംഘത്തിന്റെ ശ്രമം

ഇതാദ്യമായാണ് ഈ വിഭാഗത്തിൽ ഇത്രയുമധികം സിനിമകൾ പ്രദർശിപ്പിക്കുന്നത്

അന്താരാഷ്ട്ര ദക്ഷിണേഷ്യൻ ചലച്ചിത്ര മേഖലയിൽ ഉള്ളവരുടെ സഹകരണം പ്രോത്സാഹിപ്പിക്കാനാണ് ഫിലിം ബസാർ സംഘടിപ്പിക്കുന്നത്